മഹാരാഷ്ട്രയിൽ കോവിഡ് ക്സുകൾ വർദ്ധിക്കുന്നു

രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് യു എസ് പ്രതിരോധ ന് സെക്രട്ടറി ലോയിഡ് ജെ ഓസ്റ്റിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി

വർദ്ധിപ്പിക്കുമെന്ന് യുഡിഎഫ് പ്രകടന പത്രിക എൽ ഡി എഫ് പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ന്യാളെ ്റൂർക്കേലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ബിരുദ ദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും ദ്വൂർക്കേല സ്റ്റീൽ പ്ലാന്റിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപുത്രിയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച കൊണാർക്കിലെ ഇന്ത്യൻ ഓയിൽ ഫൌണ്ടേഷൻ ട്രസ്റ്റ് സന്ദർശിച്ച ശേഷം രാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും

ഉഭയകക്ഷിബന്ധം പ്രതിരോധ മേഖലയിലെ സഹകരണം തുടങ്ങിയവ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നു സുരക്ഷാരംഗത്തെ വെല്ലുവിളികൾ ഉൾപ്പെടെ ഇരുരാജൃങ്ങൾക്കും ഇൻഡോ പസഫിക് മേഖലയിലുള്ള പൊതു താൽപ്പര്യങ്ങളും ചർച്ചയായി രാവിലെ യു എസ് പ്രതിരോധ സെക്രട്ടറി ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകം സന്ദർശിച്ച് പുഷ്പചക്രം അർപ്പിച്ചു വിജ്ഞാൻ ഭവൻ അങ്കണത്തിൽ സേന അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും പ്രതിരോധ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിൽ ഛബുവയിലെ പ്രചാരണ പരിപാടിയിലും പങ്കെടുക്കും

നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒപ്പം ക്ഷ്യാകുമാരി ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെട്ടുപ്പ് നടക്കുന്നുണ്ട്

സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും

പരമ ദരിദ്രാവസ്ഥയിലുള്ളവർക്കായി മൈക്രോ പ്താൻ തയ്യാറാക്കിയിട്ടുണ്ട്

ക്ഷേമപെൻഷൻ വിതരണത്തിനു കമ്മിഷൻ രൂപീകരിക്കുമെന്നും യു കൺവീനർ ബെന്നി ബെഹനാൻ പുറത്തിറക്കിയ ഡി എഫ് പത്രികയിൽ വൃക്തമാക്കുന്നു

മൂന്ന് ഘട്ടങ്ങളിലായാണ് അസമിൽ തെരഞ്ഞെടുപ്പ്

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദും

ചില സംസ്ഥാനങ്ങളിലെ പെട്ടെന്നുണ്ടായ കോവിഡ് വ്യാപനത്തെ തുടർന്ന് രാജ്യത്ത് രോഗബാധ വർദ്ധിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രാലയം അറിയിച്ചു

ക്കോപ്പിഡ്ുമായി ബന്ധപ്പെട്ട് സംസ്ഥാന അതിർത്തികൾ അടക്കുന്നത് അംഗീകരിക്കില്ല ഇക്കാര്യം കേന്ദ്രത്തെ ധരിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി തൃശൂരിൽ പറഞ്ഞു

കോവിഡ്ടിന്റെ സാഹചര്യത്തിലാണ് ആഘോഷ പരിപാടികൾക്ക് നിയന്ത്രണ്ടങ്ങൾ ഏർപ്പെടുത്തിയത്

ഭാരത് ബയോ ടെക് വികസിപ്പിച്ച മരുന്നിന് അംഗീകാരം നൽകുന്ന രണ്ടാമത്തെ വിദേശരാജ്യമായി നേപ്പാൾ മാറി നേരത്തെ സിംബാബ് വേയും കോ വാക്സിന് അംഗീകാരം നൽകിയിരുന്നു

വാക്സിൻ വഹിച്ചുകൊണ്ടുള്ള വിമാനം ഇന്നലെ ലാവോസ് നഗരമായ വിയന്റി യാനിൽ എത്തി

ഈ പരിപാടിയിൽ ഉൾപ്പെടുത്താനുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു

ക്യാപ്റ്റൻ മനോജ് പാണ്ഡെയുടെ ഗ്രാമമായ ഉത്തർപ്രദേശിലെ സീതാപൂർജില്ലയിലെ റൂറിയിലാണ് സൂര്യ കമാൻഡിന്റെ മേൽനോട്ടത്തിൽ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്

ഇന്ത്യയുടെ പി

ഇന്നലെ കാർട്ടർ ഫൈനലിൽ ജപ്പാന്റെ അകാനെ യമഗുച്ചിയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു സെമിയിൽ ഇടം നേടിയത്